കേരളത്തിലെ നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്

സർവജന സ്കൂളിലെ യു

ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് ന് നിർബന്ധം നിയമം ലും ്ലിക്കുന്നവരിൽ നിന്ന് ഇന്ന് മുതൽ പിഴ ഈടാക്കും

ഉറപ്പാക്കുന്ന മിഷൻ ഇന്ദ്രധനുഷിന്റെ രണ്ടാംഘട്ടത്തിന് ഇന്ന് തുടക്കം

കണ്ണൂരിൽ തുടക്കമാകും

മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് ഗവൺമെന്റ് നാല് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു മേട്ടുപ്പാളയം ഊട്ടി കൂനൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു വടക്കുകിഴക്കൻ മൺസൂണിൽ കനത്ത മഴയാണ് തമിഴ്നാട്ടിൽ തുടരുന്നത്

തീരദേശ ജില്ലകളായ തിരുവള്ളൂർ തൂത്തുക്കുടി രാമനാഥപുരം ജില്ലകളിലും ചെങ്കൽപ്പേട്ട് കാഞ്ചീപുരം കഡലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ്

രണ്ടു ദിവസമായി മഴ തുടരുന്ന രാമേശ്വരത്ത് പല മേഖലയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു

ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപംകൊണ്ട ന്യൂനമർദത്തെ തുടർന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീച്ചുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

സി

കൊണ്ടാണ് ഗവൺമെന്റ് കേരള ബാങ്ക് തുടങ്ങുന്നതെന്നും ഇതിന് റിസർവ് ബാങ്കിന്റെ അറ്റ്മിമ് അനുമതി കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

അവർക്കെതിരായ ഓപ്പറേഷന് ഇത്രയും സൌകര്യം ആവശ്യമില്ലെന്നും കെ

സി

ഫെബ്രുവരിയിൽ ഡി സി സി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

രാവിലെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്കൂൾ അസംബ്ലി ചേർന്ന ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചത്

സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ക്ഷേമനിധി തൊഴിലാളികൾക്കും മക്കൾക്കുമായി സംഘടിപ്പിച്ച കലാകായിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം കഴിവുകളാണുള്ളത് അത്തരം കഴിവുകളെ പരിപോഷിപ്പിക്കാൻ പ്രത്യേക മേള അടുത്ത വർഷം മുതൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു

നിയമലംഘനം ആ്വർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും ആലോചനയുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ സ്കാഡിനു പുറമെ നിരീക്ഷണ ക്യാമറകൾ വഴിയും നിയമലംഘകരെ കണ്ടെത്തും

പുതുക്കിയ നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽവരും

രണ്ട് വയസുവരെയുള്ള കുട്ടികൾക്കും ഗ്ർഭ്രിണികൾക്കും എട്ട് തരം രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ്യു ക്ട്തിവയ്പ്പ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്

അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണമിശ്രിതവും സ്വർണവുമാണ് മസ്കറ്റിൽനിന്നെത്തിയ മൂന്ന് യാത്രക്കാരിൽനിന്ന് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത്

ബി ഐ യുടെ എ ടി എമ്മി ൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷണം നടത്താൻ ശ്രമം പുലർച്ചെ രണ്ടരയോടെയാണ് സൃഷ്ടിപ്പ് മോഷ്ടാക്കൾ വന്നതെന്ന് സംശയിക്കുന്ന വാഗണർ കാർ സമീപ്പത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്

മന്ത്രി

ജലീൽ മേള ഉദ്ഘാടനം ചെയ്തു

വർഷത്തെ പുത്തരി ഉത്സവത്തിന് രാവിലെ മാടമനയില്ലത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റി ഉത്സവം വെള്ളിയാഴ്ച സമാപിക്കും ഓഹരിവിപണി രാജ്യത്തെ ഓഹരിവിപണികളിൽ നേട്ടം സ്വർണ്ണ വില കുറഞ്ഞു

വൈകുന്നേരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

ഈ മാസം ആറാം തീയതി വൂര്െ നട്ട്ക്കുന്ന ടൂർണമെന്റിൽ കർണാടക തമിഴ്നാട് ഒഡിഷ മധ്യപ്രദ്ദേൾ